ശക്തമായ നിലപാടുമായി ബ്രിക്സ് ഉച്ചകോടി ജനാധിപത്യത്തിന്റേയും സമഗ്രതയുടേയും അടിസ്ഥാനമൂലൃങ്ങൾ സംരക്ഷിക്കുമെന്നും ബ്രിക്സ്

രാഷ്ട്രത്തലവൻമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി

വിജയ് മലൃയുടെ അപ്പീൽ ബ്രിട്ടനിലെ കോടതി നിരാകരിച്ചു

ചന്ദ്രഗ്രഹണം ഇന്ന്ട്

ഔദ്യോഗിക ഫലപ്രഖ്യാപനം വൈകുന്നു

ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാഷ്ട്രങ്ങളുടെ സംയുക്തസംഘടനയായ ബ്രിക്സ് ആക്ര്യക്ഷീയതയ്ക്കെതിരേയും പ്രതിരോധവാദത്തിനെതിരെയും ശക്തമായ നിലപാട് കൈക്കൊള്ളുവാനും തീരുമാനിച്ചു സഖ്യരാഷ്ട്രങ്ങൾ തമ്മിൽ വാണിജ്യമേഖലയിൽ സുതാര്യത ഉറപ്പാക്കുവാനും വേർതീരിവുകൾ ഇല്ലാതാക്കുവാനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുവാനും ചർച്ചകളിൽ തീരുമാനമായി ലോക വാണിജ്യ സംഘടനയുടെ നിയമങ്ങൾക്ക് അനുരോധ്യമായി വ്യാവസായിക വാണിജ്യരംഗം വിപുലപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു അഴിമതി തടയാനും ധനകാര്യ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനും അവരുടെ സ്വത്തുവകകൾ ക ുകെട്ടുന്നതിനും ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കിടയിൽ നടപടികൾ കൈക്കൊള്ളുന്നതിന് സമ്മേളനത്തിൽ ധാരണയായി ബ്രിക്സിന്റെ പത്താമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു നാലാം വ്യാവസായിക വിപ്തവം ബ്രിക്സ് രാഷ്ട്രങ്ങൾക്ക് ഒട്ടേറെ അവസരങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വിഘാതമാകുന്ന സാങ്കേതികത്വത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ചൈന ദക്ഷിണാഫ്രിക്ക അർജന്റീന അംഗോള എന്നീ രാഷ്ട്രതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ്പിങ്ങുമായി മൂന്നു മാസത്തിനിടെ മോദി നടത്തിയ മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്

രാജ്യസഭയിൽ ഇന്നലെ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് കേന്ദ്രനിലപാട് അറിയിച്ചത് ഇന്ത്യക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ അനധികൃത മാർഗ്ഗങ്ങളിലൂടെ കേംബ്രിഡ്ജ് അനലിറ്റിക്ക ചോർത്തിയതായാണ് പ്രാഥമിക അന്വേഷണം സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നാൽ സ്ഥിരീകരിച്ച ഫേസ്ബുക്കിന്റെ നിലപാടുകളോട് കമ്പനി യോജിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വരുന്ന തിങ്കളാഴ്ച തന്നെ രേഖ പുറ്ത്തിറ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ

അനധികൃത കടന്നുകയറ്റം തിരിച്ചറിയുന്നതിനാണ് ദേശീയ പൌരത്വ രേഖ ലക്ഷ്യമാടുന്നത്

പൊലീസ് റിക്രൂട്ട്മെന്റ് സേനാവിന്യാസം തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ബാനർജി പറഞ്ഞു മമത സംസ്ഥാനത്തെ ഏതു ഗവൺമെന്റ് ജീവനക്കാരനെതിരെയും ലോകായുക്തക്കു പരാതി നൽകാം പ്രതിപക്ഷമായ ബി ജെ പിയും കോൺഗ്രസും ബില്ലിനെ എതിർത്തു മൂന്നിൽ ര ് ഭൂരിപക്ഷത്തോടെയാണ് സഭ ബിൽ പാസാക്കിയത്

എം കെ സ്റ്റാലിൻ കനിമൊഴി എന്നിവരെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് കരുണാനിധിയുടെ സുഖവിവരങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു കരുണാനിധി എത്രയുംപെട്ടെന്ന് സുഖംപ്രാപിക്കട്ടെ എന്ന് പിന്നീട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

വിശദാംശങ്ങളുമായി ബിന്ദു വി

ഇന്ത്യയെകൂടാതെ ആഫ്രിക്ക മധ്യ ഏഷ്യ ദക്ഷിണ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ഗ്രഹണം കാണാൻ കഴിയും ചന്ദ്രനിലേക്ക് പതിക്കുന്ന സൂര്യ രശ്മികളെ പൂർണമായും ഭൂമി തടയുന്നതാണ് പൂർണ ചന്ദ്രഗ്രഹണം ചന്ദ്രന് ചുവപ്പ് രാശി പ്രടരുന്നതിനാൽ രക്തചന്ദ്രൻ അഥവാ ബ്ലഡ്മൂൺ പ്രതിഭാസവും കാണാൻ സാധിക്കും ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്മീതിയിലാണ് ചന്ദ്രൻ

തെക്കേ അമേരിക്ക പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ സന്ധ്യയോടെ പൂർണഗ്രഹണ്ം നടക്കും ഓസ്ട്രേലിയ ന്യൂസിലന്റ് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പുലർച്ചെയാകും ഗ്രഹണം ദൃശ്യമാകുക

ഗ്രഹത്തെ കൂടുതൽ വലിപ്പത്തിലും തിളക്കത്തിലും ഇന്ന് മുതൽ കാണാൻ സാധിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ ഉത്തരവിനെതിരെ അപ്പീൽ പോകാനുള്ള അവസരമാണ് ബ്രിട്ടീഷ് അപ്പീൽ കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് അതിനിടെ വിജയ് മല്യയെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു

രാജൃത്തെ നയിക്കുന്ന നേതാക്കളുടെ ഉയർന്ന ധാർമികതയും രാഷ്ട്രിയ ഇച്ഛാശക്തിയുമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നതെന്നും രാഷ്ട്രീയ താൽപരൃങ്ങൾക്കുപരിയായി ജനങ്ങളുടെ താൽപരൃത്തിന് നേതാക്കൾ പ്രാധാനൃം നൽകുന്നതിന് തെളിവാണ് ബില്ലെന്നും സത്യാർത്ഥി ട്വിറ്റ് ചെയ്തു നിഷ്ക്കളങ്കരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കടത്തുന്നത് മാനവരാശിക്കെതിരെയുള്ള ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു

മധ്യ തെക്കനേഷ്യൻ കാര്യങ്ങൾക്കായുള്ള അമേരിക്കൻ പ്രിൻസിപ്പൾ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് അറിയിച്ചതാണ് ഇക്കാര്യം

അമേരിക്കയിലെ അംഗം ഇന്ത്യൻ വംശജനായ കോൺഗ്രസ് പ അമിബേരയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു

കൈയിൽ പരിക്കേറ്റ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു

തന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചതായി ഇന്നലെ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇമ്രാൻ ഖാൻ അവകാശപ്പെട്ടു

സാങ്കേതിക തകരാർമൂലമാണ് ഔദ്യോഗിക ഫലം വൈകുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം

ബോദിവൃക്ഷ ചുവട്ടിൽ ദിവൃ ജ്ഞാനം ഉ ായതിന് ശേഷം ശ്രീബുദ്ധൻ നടത്തിയ ആദ്യ ധർമ്മ പ്രഭാഷണത്തെ അനുസ്മരിച്ചാണ് ഗുരുപൂർണിമ കൊ ാടുന്നത്

വഴികാട്ടികളാണെന്നും ഇവരുടെ പ്രചോദനമാണ് സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു